ശബരിമലയിൽ കനത്ത സുരക്ഷ തുടരുന്നു

സെക്രട്ടറി കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി സംസ്ഥാന വ്യാപകമായി റോഡ് ഉപരോധിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ

അധ്യക്ഷൻ അമിത് ഷാ കേന്ദ്രമന്ത്രി അരുൺ ജയ്റ്റ്ലി ബി ജെ പിയുടെ മറ്റ് പ്രമുഖ നേതാക്കൾ തുടങ്ങിയർ ഇന്ന് വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന മുതിർന്ന കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ ചെയ്യും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരും സംസ്ഥാനത്ത് വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്

ഇന്ത്യയുമായി മികച്ച നയതന്ത്രപങ്കാളിത്തമുള്ള രാജ്യമാണ് വിയറ്റ്നാം

ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായാണ് ഓസ്ട്രേലിയ സന്ദർശിക്കുന്നത്

ഒരു റിപ്പോർട്ട്

പളനിസ്വാമി സന്ദർശനം നടത്തും മധ്യ തമിഴ്നാട്ടിലെ തീര ജില്ലകളിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് വൈദ്യുതി അടിസ്ഥാന സൌകര്യം എന്നീ മേഖലകളിൽ വൻനാശനഷ്ടമാണ് ഉണ്ടാക്കിയത്

തകരിലാറിയ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ ശ്രമങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു നാഗപട്ടണം ജില്ലയിൽ കടലിലേക്ക് ഒഴുകിപ്പോയ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്

ചേർത്തലയിലെ ് വടക്കൻ മേഖലകളിലാണ് ഗജയോടനുബന്ധിച്ചുള്ളൂട്ടുകാറ്റിൽ മരം വീണ് കൂടുതൽ വീടുകൾക്ക് നാശം ഉണ്ടായിട്ടുള്ളത്

തോമസ് ഐസക് പി തിലോത്തമൻ തുടങ്ങിയവർ നാശമുണ്ടായ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി

ഭീകരർ ഒളിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ റെബ്ബാൻ മേഖലകളിൽ തെരച്ചിൽ ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഭീകരർക്കുനേരെ വെടിയുതിർത്തത് കൊല്ലപ്പെട്ട ഭീകരർ അൽ ബാദർ സംഘത്തിലുള്ളവരായിരുന്നു

കാട്ടുതീയിൽ ഒറ്റപ്പെട്ടവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്

ഭരണഘടന ഉറപ്പുനൽകുന്ന അവകാശങ്ങൾ പുനസ്ഥാപിക്കുമെന്നും നിയമപരിഷ്ക്കാരങ്ങൾ നടപ്പാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്

ജനുവരി എട്ട് വരെ സൂമ്മേളനം നീളുമെന്ന് ലോക്സഭാ സെക്രട്ടറിയേറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ഇന്ത്യൻ വിദേശകാര്യ പ്രതിനിധി സൌരഭ് കുമാറും ഇറാൻ പ്രതിനിധി മൌഷൂദ് ഖാൻസാരിയുമാണ് ടെഹ്റാനിൽ ചർച്ച നടത്തിയത് ഇറാനുമായുള്ള വാണിജ്യ കരാറുകളിൽ ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ചർച്ച ഇറാനിലെ ഛാബഹാറിൽ ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിക്കുന്ന തുറമുഖത്തിന്റെ സാധ്യതകളും ചർച്ച ചെയ്തു

ഉപഗ്രഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കൃത്യവും വിജയകരവുമായിനടന്നുവരുന്നതായി ഐ

ആർ ഒ ചെയർമാൻ കെ

കൊല്ലപ്പെട്ടവർ ഐ

തീവ്രവാദികളാണോ സാധാരണക്കാരാണോ എന്ന് വ്യക്തമായിട്ടില്ലെന്ന് ബ്രിട്ടീഷ് സംഘടന അറിയിച്ചു

അമേരിക്കൻ സഹായത്തോടെ ഐ എസിന് എതിരെ പോരാടുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ആണ് ആക്രമണം നടത്തിയത്

ബി ഐ അന്വേഷണത്തെ പേടിക്കുന്നതെന്ന് അദ്ദേഹം ഭോപ്പാലിൽ വാർത്താലേഖകരോട് പറഞ്ഞു അഴിമതി അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഒരു സംസ്ഥാനങ്ങൾക്കും പരമാവകാശം നൽകിയിട്ടില്ല ശാരദാ ചിട്ടി കുംഭകോണം മറയ്ക്കാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമങ്ങളെ പശ്ചിമബംഗാൾ ഗവൺമെന്റിന്റെ തീരുമാനം സഹായിക്കില്ലെന്നും അദ്ദേഹം പാട്ട്ട്ടു് സംസ്ഥാനങ്ങളുടെ ഇത്തരം നിലപാടുകൾ രാജ്യത്തിട്ടെറ്റ് ഫെഡറൽ സ്വഭാവം തകർക്കുമെന്നും കേന്ദ്ര മന്ത്രി പ്റ്റുണ്ടു

സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധദിനം ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ദേശീയപാതകൾ ബി ജെ പി പ്രവർത്തകർ ഉപരോധിച്ചു

ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

പത്തനംതിട്ട ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് റിമാന്റ് ചെയ്ത സുരേന്ദ്രനെ കൊട്ടാരക്കര സബ് ജയിലിലേയ്ക്ക് മാറ്റി

സുരേന്ദ്രനെയും മറ്റ് രണ്ട് പേരെയും അറസ്റ്റ് ചെയ്തത്

ഈ സമയത്ത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല

ന്യൂഡൽഹിയിൽ വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ കസാഖിസ്ഥാൻ താരം ഐജീം കെസ്നായോവെയെ മേരി കോം നേരിടും ലോവിനോ ബോർഗോൻ മനീഷാ തുടങ്ങിയ താരങ്ങളും മത്സരിക്കുന്നുണ്ട്

ഈ സീസണിലെ അവസാന മത്സരത്തിൽ ആറാം കിരീടം ലക്ഷ്യമിട്ടാണ് ജോക്കോവിച്ച് ഇറങ്ങുന്നത്